മേഖലയിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമൻ

ജെ

നേതാവുമായ സ്പാമി ചിന്മയാനന്ദ് അറസ്റ്റിൽ

ഇന്ധനവില വർദ്ധന പണപ്പെരുപ്പത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ്

ആഭ്യന്തര കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമൻ പറഞ്ഞു ഗോവയിൽ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാരൃം വൃക്തമാക്കിയത്

നിയമഭേധഗതിക്ക് ഓർഡിനൻസ് കൊണ്ടിവരുടെന്നും ശ്രീമതി നിർമലാ സീതാരാമൻ പറഞ്ഞു

നാളെ ഉച്ചുമുതലാണ് ഔദ്യോഗിക പര്യടനം ആരംഭിക്കുക

എൻ പൊതുസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തുന്നത്

ഞായറാഴ്ച ഹുസ്റ്റണിൽ ടെക്സാസ് ഇന്ത്യാ ഫോര്ട് സംഘടിപ്പിക്കുന്ന ഹൌഡി യോഗത്തെ അദ്ദേഹരി അഭിസംബോധന ചെയ്യുമെന്ന് മോഡി വിദേശകാരൃ സെക്രട്ടറി വിജയ്ക് ഗോഖലെ അറിയിച്ചു സമ്മേളനത്തിൽ ശ്രീ മോദിയോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും മഹാത്മുഴഗാന്ധിയുടെ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഐകൃരാഷ്ട്രസഭയിൽ പ്രത്യേക പരിപാടിയും ഇന്ത്യ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്നുണ്ട്

സച്ച്ഭാരത് അഭിയാന് നേതൃത്വം നല്കിയതിന് ബിൽ ആന്റ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ നല്കുന്ന ഗ്ലോബൽ ഗോൾകീപ്പേഴ്സ് അവാർഡ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഹൂസ്റ്റണിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്

ഐക്യരാഷ്ട്ര ആസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള സൌര പാനലുകൾ ഇന്ത്യയുടെ സംഭാവനയാണ്

അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി മംഗോളിയൻ തലസ്ഥാനമായ ഉലൻബാറ്റാറിലെ ഗന്ധൻ മൊണാസ്ട്രിയിൽ നിർമ്മിച്ച ബുദ്ധ പ്രതിമ ഇരുവരും വീഡിയോ കോൺഫറൻസിംഗിലൂടെ അനാഛാദനം ചെയ്തു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി അദ്ദേഹം ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തും

കശ്മീരിൽ മനുഷ്യാവകാശലംഘനം നടക്കുന്നതായി ആരോപിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൌൺസിലിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പാകിസ്ഥാന് ഒരു രാജ്യത്തിന്റെയും പിന്തുണ ലഭിച്ചില്ല

ഇന്നലെ വൈകിട്ട് പൂഞ്ച് ജില്ലയിലെ ഷാഹ്പൂർ കെർണി സെക്ടറുകളിലാണ് മോർട്ടോറുകളും ഷെല്ലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്

ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ നഗരസഭ നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ട് നൽകുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഈ പ്രതികൂല കാലാവസ്ഥയെ നേരിടാൻ പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് എല്ലാ സന്നാഹങ്ങളും ലഭ്യമാക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ഗവർണറുടെ ഓഫീസ് പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ പറയുന്നു

സ്വർണവില വർദ്ധിച്ചു

ലോകചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ സായ്പ്രണീത് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ടൂർണമെന്റിൽ മത്സരിക്കൂന്നത്